ഇരു രാജ്യങ്ങളും നിർണായക കരാറുകളിൽ ഒപ്പുവച്ചു കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

കൊറിയൻ മേഖലയിൽ സമാധാനം കൊ ുവരാനുള്ള മാർഗ്ഗങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തെന്നാണ് റിപ്പോർട്ട്

ഊഷ്മളമായ ബന്ധത്തിന്റെ നാളുകളാണ് ഇനിയുള്ളതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പഴയകാര്യങ്ങൾ അപ്രസക്തമാണെന്നും ഒട്ടേറെ തടസ്സങ്ങൾ മറികടന്നാണ് ഇവിടെവരെ എത്തിയതെന്നും ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് പ്രതികരിച്ചു നിർണായകമായ മാറ്റത്തിന് ലോകം സാക്ഷ്യം വഹിക്കുമെന്ന് കിം ജോങ് ഉൻ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റും ഉത്തരകൊറിയൻ ഭരണ മേധാവിയും തമ്മിൽ കാണുന്നത് വിവിധ നിർണായക കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടതായും റിപ്പോർട്ടുകളു ് അണുവായുധ പരീക്ഷണങ്ങൾ പൂർണമായും നിർത്തി വയ്ക്കുകയാണെങ്കിൽ ഉത്തരകൊറിയയ്ക്ക് പൂർണ പിന്തുണ നൽകുമെന്ന് അമേരിക്ക നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു ഇതേ തുടർന്ന് അണുവായുധ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനും പരീക്ഷണങ്ങൾ നിർത്തിവയ്ക്കാനുമുള്ള ഉത്തരകൊരിയയുടെ നടപടികളാണ് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്

ലോക സമാധാന നീക്കങ്ങളിൽ ട്രംപ് കിം കൂടിക്കാഴ്ച വലിയ ചുവട് വയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്

വ്യാപാര രംഗത്തെ പ്രശ്നങ്ങൾ തുടർന്നാൽ അത് ആഗോള സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിക്കുമെന്ന് റോബർട്ടോ പറഞ്ഞു

കർക്കശ നിലപാട് തുടർന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യാഘാതങ്ങൾ നേരിടേ ിവരും

യു എസ് പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപ് അമേരിക്കയിലേക്കുള്ള ലോഹ കയറ്റുമതി നികുതികൾ വർദ്ധിപ്പിച്ചതായി യൂറോപ്യൻ യൂണിയനും പരാതിയു ്

ബ്രിട്ടീഷ് മന്ത്രി ബരോനസ് വില്യംസുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം മറ്റ് രാജ്യങ്ങളിൽ കുറ്റകൃത്യം നടത്തിയവർക്കുള്ള സുരക്ഷിത താവളമല്ല ബ്രിട്ടനെന്ന് ബ്രിട്ടീഷ് മന്ത്രി പറഞ്ഞതായി കേന്ദ്രമന്ത്രി അറിയിച്ചു വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതിയായ വിജയ് മല്യയെ ഇന്ത്യയിൽ തിരികെ എത്തിക്കുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ പുരോഗമിച്ചു കൊ ിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കുടിയേറ്റം ഭീകര പ്രവർത്തനങ്ങളൂടെ ഉൻമൂലനം കൂറ്റവാളികളെ കൈമാറൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട രേഖകളുടെ കൈമാറ്റം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ച നടത്തിയതായും വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു

പ്രധാനമന്ത്രിയുടെ സുരക്ഷ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ വിളിച്ചു് ചേർത്ത ഉന്നതതലയോഗത്തിലാണ് തീരുമാനം ദേശീയ സ്ഥ്രക്ഷ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആഭ്യന്തരവകുപ്പ് സെക്രട്ട്റി രാജീവ് ഗൌബ എന്നിവരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു പ്രധാനമന്ത്രിയുടെ ജീവന് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും കൈക്കൊളളാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി മാവോയിസ്റ്റുകൾ പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്ന മഹാരാഷ്ട്ര പോലീസിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് അവലോകനയോഗം ചേർന്നത്

വാൻഗം മേഖലയിലെ ജില്ലാ കോടതി സമുച്ചയത്തിന് കാവൽനിന്ന പൊലീസുകാർക്ക് നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് സുരക്ഷാ വക്താവ് ആകാശവാണിയോട് പറഞ്ഞു അനന്താനാഗിൽ സി ആർ പി എഫ് പാർട്ടിക്ക് നേരെ തീവ്രവാദി ആക്രമണം ഉ ാവുകയും അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ ശ്രീനഗർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടു ് ആക്രമണത്തെ തുടർന്ന് ഈ മേഖലകളിൽ വിശദമായ തിരച്ചിൽ നിട്ടുന്നു വരികയാണെന്ന് സൈനിക വക്താക്കൾ അറിയിച്ചു

ഇതിന്റെ ഭാഗമായി സാംസ്ക്കാരിക സഹമന്ത്രി ഡോ

എസ് പ്രവർത്തകൻ നൽകിയ് ് അപകീർത്തിക്കേസിൽ താൻ കുറ്റക്കാരനല്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി താനെ കോടതിയിൽ അറിയിച്ചു

ചിറ്റാൾ മരണപ്പെട്ടാൽ തുടർന്നുള്ള തവണസംഖ്യ അടയ്ക്കേ തില്ല നറുക്കു വീണുകിട്ടുന്ന തുക പെൻഷൻ ഫ ് ആയി മാറ്റി എടുക്കാൻ അനുവദിക്കുമെന്നും ധനമന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു

രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം

കായിക ലോകത്തെ ഒന്നടങ്കം ഫുട്ബോൾ ലഹരിയിലാഴ്ത്താൻ റഷ്യ ഒരുങ്ങിക്കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

ബ്രസീലിയൻ ഇതിഹാസ താരം റൊണാൾഡോയും ബ്രിട്ടീഷ് ഗായകൻ റോബി വില്യംസുമാണ് ഉദ്ഘാടന ചടങ്ങിലെ പ്രധാന അതിഥികൾ

എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കിക്കോഫിന് അരമണിക്കൂർ മുൻപ് മാത്രമേ ചടങ്ങുകൾ ആരംഭിക്കുകയുള്ളൂവെന്ന് സംഘാടകർ അറിയിച്ചിട്ടു ്

ബ്രസീൽ അർജന്റീന ജർമ്മനി ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ ഫ്രാൻസ് തുടങ്ങിയ പ്രധാന ടീമുകൾ എല്ലാം റഷ്യൻ മണ്ണിൽ വിമാനം ഇറങ്ങിക്കിഴിഞ്ഞു

ആരാധകർക്ക് സിരകളിൽ ഫുട്ബോൾ ആവേശത്തിന്റെ ദിനങ്ങളാണ് ഇനി ന്യൂസ് ഡെസ്ക് ആകാശവാണി